പാർലമെന്റിന്റെ ശൈതൃകാല സമ്മേളനത്തിന് തുടക്കമായി ഗുണപരമായ സംവാദവും തുറന്ന ചർച്ചകളും വേണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

ശ്രീലങ്കൻ പ്രസിഡന്റായി ഗോദബായ രാജപക്സെ സത്യപ്രതിജ്ഞ ചെയ്തു

ഗുണപരമായ സംവാദങ്ങൾക്കും തുറന്ന ചർച്ചകൾക്കും പാർലമെന്റ് സാക്ഷിയാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു സമ്മേളനത്തിന് മുന്നോടിയായി മാധ്യമങ്ങളോട് സംസാരിക്കുകയാ യിരുന്നു അദ്ദേഹം

കഴിഞ്ഞ ദിവസങ്ങളിലായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലേയും നേതാക്കളുമായി ചർച്ച നടത്താനുളള അവസരം ലഭിച്ചതായും ൃശ്രീ മോദി പറഞ്ഞു എല്ലാ പാർലമെന്റ് അംഗങ്ങളുടെയും പിന്തൂണ്ണ്കൊണ്ട് കഴിഞ്ഞ സമ്മേളനം വിജയകരമായിരുന്നു ഇത്തവജ്യിൽ ് ഗുണപരമായ ചർച്ചകളിൽ പങ്കെടുക്കണമെന്നും പ്രധാന്മിന്തി ്ആവശ്യപ്പെട്ടു അതേസമയം സഭ സുഗമമായി സമ്മേളിപ്പിക്കുന്നതിന്റെ ഉത്തരവാദിത്തം ഗവൺമെന്റിന് മേലാണെന്ന് കോൺഗ്രിസ്റ്റ് നേതാവ് അധിർ രഞ്ജൻ ചൌധരി പറഞ്ഞു

ഇന്ത്യയുടെ നാനാത്വത്തിൽ ഏകത്വം രാജ്യസഭയിൽ വളരെ മനോഹരമാം വിധം പ്രതിഫലിച്ചെന്ന് അദ്ദേഹം പറഞ്ഞു

കൂടുതൽ വിവരങ്ങളുമായി നരേന്ദ്രമോഹൻ

സഭയുടെ നല്ല നടത്തിപ്പിനായി ക്രിയാത്മക നിർദ്ദേശങ്ങൾ മുന്നോട്ടുവയ്ക്കാൻ സഭാംഗങ്ങൾ ചർച്ചകളിൽ സജീവമായി ഇടപെടണമെന്നും ശ്രീ

ജെ

ബ്രിഹാൻ മുംബൈ മേയർ തെരഞ്ഞെടുപ്പിൽ ബി ജെ

അവിശുദ്ധ കൂട്ടുകെട്ടുകളിൽ നിന്നും പിന്മാറുന്നതിന്റെ ഭാഗമായാണ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാ തിരിക്കുന്നെതെന്ന് ബി ജെ

സി

അധ്യക്ഷൻ ശരത്പവാർ കോൺഗ്രസ് അധ്യക്ഷ സോണിയാ ഗാന്ധിയുമായി ഇന്ന് ചർച്ച നടത്തി മഹാരാഷ്ട്രയിലെ ഗവൺമെന്റ് രൂപീകരണത്തിനായുള്ള ചർച്ചകൾക്ക് മൂന്ന് ദിവസത്തിനുള്ളിൽ എൻ സി

കോൺഗ്രസ് പ്രതിനിധികൾ ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തുമെന്ന് കോൺഗ്രസ് വക്താവ് രൺദീപ് സുർജെവാല പറഞ്ഞു

കൂടുതൽ വിവരങ്ങളുമായി നരേന്ദ്രമോഹൻ

മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയ്ക്ക് കീഴിൽ ഇന്ത്യയിലെ പ്രതിരോധ മേഖലയ്ക്ക് പ്രഥമ പരിഗണനയാണ് നൽകുന്നത് ഇറക്കുമതി കുറച്ച് ഇന്ത്യയെ പ്രമുഖ പ്രതിരോധ നിർമ്മാണ കേന്ദ്രമാക്കി മാറ്റുന്നതിനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു കഴിഞ്ഞ രണ്ടുവർഷമായി പ്രതിരോധമേഖല യുടെ കയറ്റുമതി ആറ് മടങ്ങായിട്ടുണ്ട്

ഭീകരവാദം പ്രതിരോധിക്കുന്നതിനായി ആഗോള സമൂഹം ഒന്നിച്ചു നിൽക്കണമെന്നും ഭീകരർക്ക് സാമ്പത്തിക സഹായം നൽകുന്നത് ഉൾപ്പെടെയുളള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ രാജ്യങ്ങൾ ഒറ്റകെട്ടായി നിൽക്കണമെന്നും ശ്രീ

ന്യൂസ്ഡെസ്ക് ആകാശവാണി

ന്യൂഡൽഹിയിൽ ഇന്ത്യൻ ഭാഷാ സാങ്കേതിക വൃവസായം സംബന്ധിച്ച ശ്വീൽപ്പശാലയായ ഭാഷാന്തര യിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

വിഷയത്തിൽ ചർച്ച ആവശ്യപ്പെട്ട് നൽക്ടിയ് അടിയന്തര പ്രമേയ നോട്ടീസ് സ്പീക്കർ നിരാകരിച്ചതിനെ തുടർന്നാണ് പ്രതിപക്ഷത്തിന്റെ ഇറങ്ങിപ്പോക്ക് സർവ്വകലാശാലയിലെ മാർക്കു തിരിമറിയുമായി ബന്ധപ്പെട്ട് അന്വേഷി ക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിച്ചുവെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കെടി

ക്രമക്കേട് കണ്ടെത്തിയ മാർക്ക് ലിസ്റ്റുകൾ റദ്ദാക്കാൻ സർവ്വകലാശാല തീരുമാനിച്ചിട്ടുണ്ട്

സ്ത്രീകളിലും കുഞ്ഞുങ്ങളിലും പോഷകാഹാരക്കുറവ് കൊണ്ടുണ്ടാ കുന്ന രോഗാവസ്ഥ കുറച്ചുകൊണ്ടുവരുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് വനിതാ ശിശു ക്ഷേമ മന്ത്രി സ്മൃതി ഇറാനി ന്യൂഡൽഹിയിൽ പറഞ്ഞു കൂടുതൽ വിവരങ്ങളുമായി നരേന്ദ്രമോഹൻ വോയിസ് പോഷകാഹാരക്കുറവ് മൂലമുണ്ടാകുന്ന വെല്ലുവിളികളെ നേരിടാൻ കൃഷിയും പോഷകാഹാരമേഖലയും ഒരുമിക്കേണ്ടത് അനിവാര്യമാ ണെന്ന് ശ്രീമതി

പോഷകാഹാരക്കുറവ് മൂലമുള്ള പ്രശ്നങ്ങൾ ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടുമുണ്ടെന്നും ചടങ്ങിൽ സംബന്ധിച്ചു മൈക്രോ സോഫ്റ്റ് സ്ഥാപകനായ ബിൽഗേറ്റ്സ് അഭിപ്രായപ്പെട്ടു അഞ്ച് വയസ്സിൽ താഴെപ്രായമുള്ള കുട്ടികൾ മരിക്കുന്നത് ഭൂരിഭാഗവും പോഷകാഹാര ക്കുറവ് മൂലമാണ്

ക്കേന്ദ്ര ഖ്നിതാ ശിശുവികസന മന്ത്രാലയവും ബിൽ ആന്റ് മിലിൻഡ ശ്ശേറ്റ്സ് ഫൌണ്ടേഷനും സംയുക്തമായാണ് പദ്ധതി നടപ്പാക്കുന്നത് ന്യൂസ് ഡെസ്ക് ആകാശവാണി

ബോബ്ഡെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു രാവിലെ രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു ചീഫ് ജസ്റ്റിസ് ആയിരുന്ന രഞ്ജൻ ഗൊഗോയി വിരമിച്ച ഒഴിവിലേക്കാണ് ജസ്റ്റിസ് ശരദ് അരവിന്ദ് ബോബ്ഡെയുടെ നിയമനം

വിദ്യാർത്ഥികളുടെ പാർലമെന്റ് മാർച്ച് ഇന്ന് വീണ്ടും പൊലീസ് തടഞ്ഞു ഡൽഹി മെട്രോയുടെ മൂന്ന് സ്റ്റേഷനുകൾ താൽക്കാലികമായി അടച്ചു അതേസമയം ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ സുഗമമായ പ്രവർത്തനം സാധ്യമാക്കുന്നതിന് കേന്ദ്ര മാനവവിഭവശേഷി മന്ത്രാലയം മൂന്നംഗ സമിതിക്ക് രൂപം നൽകി വിദ്യാർത്ഥികളുമായും സർവ്വകലാശാല അധികൃതരുമായും ചർച്ച ചെയ്ത ശേഷം പ്രശ്നത്തിനുള്ള പരിഹാരം സമിതി നിർദ്ദേശിക്കും

വായൂ മലിനീകരണ്ടു പ്രസ്ംബന്ധിച്ച സ്ഥിതിഗതികൾ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയവും മിലിനീകരണ നിയന്ത്രണ ബോർഡും നിരീക്ഷിച്ചു വരികയാണെന്നും പ്പ്രിഫീാരത്തിനായി ഊർജജിത ശ്രമങ്ങൾ നടത്തുകയാണെന്നും ശ്രീ മിൾ മാധ്യമങ്ങളോട് പറഞ്ഞു ഇത് സംബന്ധിച്ച് സുപ്രീം കോട്ടതിയും ദേശീയ ഹരിത ട്രിബ്യൂണലും പരിസ്ഥിതി മന്ത്രാലയവ്ട്ട് നൽകിയ നിർദ്ദേശങ്ങൾ യോഗത്തിൽ അവലോകനം ചെയ്തതായും അദ്ദേഹം പറഞ്ഞു

നിഷ്പക്ഷമായ വിദേശ നയമായിരുക്കും താൻ പിന്തുടരുകയെന്നും ലോക ശക്തികളുമായുളള തർക്കങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുമെന്നും ശ്രീ രാജപക്സെ പറഞ്ഞു താൻ പ്രതീക്ഷിച്ചതിനേക്കാളും ഏറെ തമിഴ് മുസ്ലീം വിഭാഗങ്ങൾ തന്റെ വിജയത്തിന് പിന്തുണ നൽകിയതായി അദ്ദേഹം പറഞ്ഞു രാജ്യത്തിന്റെ സുസ്ഥിരമായ ഭാവിക്കായി യഥാർത്ഥ ശ്രീലങ്കക്കാരായി എല്ലാവരും തന്നോടൊപ്പം നിൽക്കണമെന്നും ശ്രീ രാജപക്സെ പറഞ്ഞു

വ്യാഴാഴ്ച വരെ പത്രിക പിൻവലിക്കാം

ന്യൂഡൽഹിയിൽ കേന്ദ്ര് ആരോഗ്യമന്ത്രി ഡോ